ണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ മൂന്നാം ഘട്ടം കേന്ദ്രം ഉടൻ ആരംഭിക്കും അടുത്ത വർഷത്തോടെ കേരളം പാലുൽപാദനത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കുമെന്ന് മന്ത്രി ഇ

മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും അന്തരിച്ച മുൻമന്ത്രി പി ശങ്കരന്റെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമ

ആൾക്കൂട്ട അക്രമങ്ങളും കൊലപാതകങ്ങളും ഹീനമായ കുറ്റകൃ ത്യവും ഗുരുതരമായ ക്രിമിനൽ കുറ്റവുമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രാ ലയം പറഞ്ഞു ഇതിന്റെ പരിണിത ഫലം ഗുരുതരമായിരിക്കുമെന്നും നിയ മപ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറി യിച്ചു അതിനിടെ അക്രമ സംഭവങ്ങളുണ്ടായ വടക്കു കിഴക്കൻ ഡൽഹി മേഖലയിൽ ഇന്നലെ സംഘർഷത്തിന് അയവു വന്നു അക്രമ സംഭവങ്ങ ളുണ്ടായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതി വിലയിരുത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിവരങ്ങൾ ധരിപ്പിച്ചു പ്രദേശത്തെ നിലവിലെ ക്രമസമാ ധാന സ്ഥിതിയും സാധാരണ നില കൈവരിക്കാൻ സ്വീകരിച്ച നടപടികളും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയോട് വിവരിച്ചു സ്ഥിതി നിയന്ത്രണ വിധേയമാ ണെന്നും പൊലീസ് അവരുടെ ജോലി ചെയ്യുന്നുണ്ടെന്നും അജിത് ഡോവൽ പറഞ്ഞു അക്രമങ്ങളുണ്ടായ പ്രദേശങ്ങളിൽ സ്ഥിതി നിയന്ത്രണ വിധേയ മാണെന്ന് ഡൽഹി പൊലീസ് വക്താവ് എം

കൂടുതൽ പൊലീസിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

കൂടുതൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമെന്നും രന്ഥാവ വ്യക്തമാക്കി

ബാബർപൂർ ജോറിപൂർ മൌജ്പൂർ എന്നിവിടങ്ങ ളിൽ സുരക്ഷാസേന ഫ്ളാഗ് മാർച്ച് നടത്തി ് പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ മൂന്നാം ഘട്ടം ഗവൺമെന്റ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി മഹ്ഗേന്ദ്രനാഥ് പാണ്ഡെ ന്യൂഡൽഹിയിൽ പറഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിച്ചു കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതി നൈപുണ്യ വികസനത്തിൽ വൻ മാറ്റം ഉണ്ടാ ക്കുമെന്ന് അദ്ദേഹം വൃക്തമാക്കി

മൂന്നാം ഘട്ടത്തിൽ ഒരു കോടി യുവജനങ്ങളെ പരിശീലിപ്പിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടു ന്നതെന്ന് കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ പറഞ്ഞു അടുത്ത വർഷത്തോടെ കേരളം പാൽ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് മന്ത്രി ഇ

ഇന്ത്യയിൽ ഏറ്റവും കൂടു തൽ വില നൽകി പാൽ സംഭരിക്കുന്നത് കേരളത്തിലാണ് ക്ഷീര രംഗത്ത് സഹകരണമേഖലയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറ ഞ്ഞു പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ തയ്യാറാക്കുകയും വിൽപന വ്യാപകമാക്കുകയും വേണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മന്ത്രി കെ രാജു പറഞ്ഞു

ഡന്റൽ മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാനാവശ്യമായ രൂപരേഖ തയാ റാക്കി നൽകുന്നതിനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കേരള ഡന്റൽ കൌൺസിലിന്റെ പ്രഥമ ആജീവ നാന്ത പുരസ്കാരം ഡോക്ടർ എം

ജെയിംസിന് മന്ത്രി സമ്മാനിച്ചു

വിദേശകാരൃ സഹമന്ത്രി വി

ഇന്നലെ വൈകീട്ട് കോഴിക്കോട് ഡി സി സി ഓഫീസിലും ടൌൺഹാളിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മിസോറം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു

തുടർന്ന് വിലാപയാത്രയായി കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും എത്തിച്ച് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറൂകണക്കിന് പേർ അന്ത്യോപചാരമർപ്പിച്ചു

ഗ്രൂപ്പ് എയിൽ നാലു പോയിന്റുമായി ഇന്ത്യയാണ് മുന്നിൽ

കേരള പ്രീമിയർ ലീഗിൽ ഗോകുലം കേരള എഫ്സി സെമിയിൽ പ്രവേശിച്ചു ഇന്നലെ കോഴിക്കോട് കോർപറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കോവളം എഫ് സിയെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടു ത്തിയാണ് ഗോകുലം സെമിയിൽ എത്തിയത് സെമിയിൽ കേരള പൊലീസാണ് ഗോകുലത്തിന്റെ എതിരാളികൾ സാറ്റ് തിരൂരുമായി മലപ്പുറത്ത് നടന്ന അവസാന ലീഗ് മത്സരത്തിൽ ഓരോ ഗോളടിച്ച് സമനില പാലിച്ചാണ് കേരള പോലീസ് സെമിയിലെത്തിയത്

ശനിയാഴ്ച ആരംഭിക്കും ആദ്യ സെമിയിൽ ചെന്നൈയിൽ ചെന്നൈയിൻ എഫ് സി എഫ് സി ഗോവയെ നേരിടും

ഒഡീഷയിലെ ഭൂവനേശ്വറിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ കാലിക്കറ്റ് സർവകലാശാലക്ക് ആദ്യമെഡൽ ലഭിച്ചു

മാത്യുവാണ് കാലിക്കറ്റിന് വേണ്ടി വെങ്കലമെഡൽ നേടിയത്

കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ മുഖ്യ പ്രതി ജോളിയമ്മ ജോസഫ് ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി റിപ്പോർട്ട് ജില്ലാ ജയിലിൽ പുലർച്ചെ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേ ശിപ്പിച്ചു

യുവാക്കൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമായ വിഷയങ്ങളെ ക്കുറിച്ച് അറിവ് നൽകുക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ പ്രദേശത്തിലെ പ്രശ് നങ്ങൾ പരിഹരിക്കുന്നതിനായി ബന്ധപ്പെട്ട പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ മറ്റു വകുപ്പുകൾ ജില്ലാഭരണകൂടം എന്നിവയുമായി ബന്ധപ്പെടുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്

വേലയോടനുബന്ധിച്ച് പാലക്കാട് താലൂക്ക് പരിധിയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു

സ്ത്രീകളുടെ സുരക്ഷക്കും അവരനുഭവിക്കുന്ന പീഡനങ്ങൾ പുറത്തെത്തിച്ച് നിയമപരമായ സംരക്ഷണ മൊരുക്കുന്നതിനും പ്രാദേശികതലത്തിൽ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം സജീവമാക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം

തൊടുപുഴ ബ്ലോക്ക്തല ജാഗ്രതാ സമിതിയംഗങ്ങളുടെ യോഗം ഉദ്ഘാട്ടനം ചെയ്യുകയായിരുന്നു അവർ

ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒരു വിദ്യാർഥിക്ക് ആവർത്തിച്ച് ചെയ്യാൻ കഴിയില്ലെന്ന് നിബന്ധന വിദ്യാർത്ഥികളുടെ പഠന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാണെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം പറഞ്ഞു കോഴിക്കോട്ട് യുവജന കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഒന്നിൽ കൂടുതൽ തവണ ബിരുദവും ബിരുദാനന്തരവും ചെയ്യാൻ കഴിയില്ലെന്ന കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല നിയമത്തിനെതിരെ ഒരു വിദ്യാർഥിനി നൽകിയ പരാതി പരിഗണിക്കവേയാണ് അവർ ഇക്കാര്യം പറഞ്ഞത്

പൂർത്തികരിക്കുമെന്ന് ജില്ലാ കളക്ടർ എച്ച്

സെൻസസ് ഉദ്യോഗസ്ഥർക്ക് രണ്ടു ദിവസത്തെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കണ്ണൂരിന്റെ ചരിത്രവും വിനോദ സഞ്ചാര സാധ്യതകളും ചിത്രങ്ങളായി പൊതുഇടങ്ങളിലെ മതിലുകളിൽ ആലേഖനം ചെയ്യുന്ന കാര്യം പരിഗണനയിലാണെന്ന് ജില്ലാ കലക്ടർ ടി

വിജയന്റെ നോവൽ ഖസാക്കിന്റെ ഇതിഹാസ ത്തിന്റെ സുവർണ്ണജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച ഖസാക്ക് സ്മാരക കവാടവും ഫോട്ടോ ഗാലറിയും മന്ത്രി എ

ബാലൻ ഇന്ന് രാവിലെ പാലക്കാട് തസ്രാക്കിൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഖസാക്ക് ഫോട്ടോ ഗ്രാഫി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മന്ത്രി വിതരണം ചെയ്യും

ദാഹജലത്തിനായി വലയുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും സഹായഹസ്തവുമായി ദാഹജലം ജീവജാലങ്ങൾക്കും എന്ന പദ്ധതിക്ക് തൃശൂർ ജില്ലയിൽ തുടക്കമായി

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ റീജിയണൽ ഔട്ട് റീച്ച് ബ്യൂറോ ഇന്നും നാളെയുമായി തിരുവനന്തപുരം വെള്ളറടയിൽ സംയോജിത ബോധവത്കരണ പരിപാടി സംഘടിപ്പിക്കും

മിഷൻ ഇന്ദ്രധനുഷിന്റെ ഭാഗമായി ഇന്ന് മാനന്തവാടിയിൽ പ്രത്യേക ജനസമ്പർക്കു പരിപാടി നടക്കും പ്രതിരോധ കുത്തിവെപ്പു കളെകുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്പ്രം

ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദിവാസി ഊരുകളുടെ പ്രതിമാസ സന്ദർശന പരിപാടിയുടെ ഭാഗമായിരുന്നു അദാലത്ത്